ചന്ദ്രശേഖരൻ

എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം

ൾ ൽ ൾ മെയ്ക് ഇൻ ഇന്ത്യ പദ്ധതി ലോകത്തെ ഏറ്റവും വലിയ രണ്ടാ മത്തെ മൊബൈൽ ഫോൺ നിർമ്മാണ രാജ്യമായി മാറാൻ ഇന്തൃക്ക് ചാലക ശക്തിയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഉത്തർപ്രദേശിലെ നോയിഡയിൽ ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ

ഇന്നുമായി ചേർന്ന് നിർവഹിക്കു കയായിരുന്നു പ്രധാനമന്ത്രി മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ട റികളുടെ എണ്ണം വർദ്ധിച്ചതോടെ നാലു ലക്ഷം പേർക്ക് നേരിട്ട് ജോലി നൽകാൻ കഴിഞ്ഞുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു മെയ്ക് ഇൻ ഇന്ത്യ പരിപാടി രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗം മാത്ര മല്ലെന്നും ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രതിബദ്ധതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ഡാറ്റ നൽകിയും ഒരു ലക്ഷത്തി ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഫൈബർ ഒപ്റ്റിക് ശൃംഖല ഏർപ്പെ ടുത്തിയും രാജൃം ഡിജിറ്റൽ വിപ്ലവത്തിലേക്ക് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് ഈ വർഷം അൻപതിനായിരം പേർക്ക് കൂടി പട്ടയം നൽകുമെന്ന് മന്ത്രി ഇ

തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കലക്ടർമാരുടെ യോഗത്തിലെ തീരുമാന ങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി എൽടി പട്ടയങ്ങൾ ദേവസ്വം പട്ടയങ്ങൾ കാണം പട്ടയങ്ങൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കും മൂവാ റ്റുപുഴ താലൂക്കിലെ കുട്ടംപുഴ പഞ്ചായത്തിൽ രണ്ടായിരത്തിൽ പരം വനം ഭൂമി പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറ ഞ്ഞു സംസ്ഥാനത്ത് പരിധിയിലധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കണ്ടെത്തി അധിക ഭൂമിക്ക് സീലിങ്ങ് കേസുകൾ രജിസ്റ്റർ ചെയ്യു മെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു

കേന്ദ്ര സംസ്ഥാന അംഗീകൃത ഏജൻസികളെ ഉൾപ്പെടുത്തി റീസർവെ ചെയ്യുന്നതിനും വാലേഷൻ സർവെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനും സമയബന്ധിതമായി നടപടി സ്വീകരി ക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായി പലയിട ങ്ങളിലും കനത്ത മഴയാണ് ലഭിക്കുന്നത് വെള്ളിയാഴ്ച്ച വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു

കനത്ത മഴയെ തുടർന്ന് എറണാകുളം പാലക്കാട് വയനാട് ജില്ല കളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാ പിച്ചു എറണാകുളം ജില്ലയിൽ സ്കൂളുകളും പ്രൊഫഷണൽ കോളേജു കളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത് സിബിഎസ്ഇ ഐസിഎസ്ഇ സ്കൂളു കൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് പകരം മറ്റൊരു ശനിയാഴ്ച്ച പ്രവൃത്തി ദിവസം ആയിരിക്കുമെന്ന് കല ക്ടർ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ അംഗനവാടി മുതൽ ഹയർ സെക്കന്ററി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കോളേജുകൾ പതിവു പോലെ പ്രവർത്തിക്കുമെന്ന് കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളജ് ഉൾപ്പെടെ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കുള്ള ഇരിട്ടി വീരാജ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണമായി നിലച്ചു കുന്നോത്ത് കേളൻപീടികക്കടുത്താണ് മണ്ണിടിഞ്ഞത്

പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി മരുതറോഡ് എലപ്പുള്ളി പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ട ങ്ങൾ ഉണ്ടായി പത്തോളം വീടുകൾക്ക് കേടുപറ്റി പുതുശ്ശേരി യിൽ ചുമർ ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ശിരുവാണി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന് ശിരുവാണി ഭവാനിപ്പുഴകളിലേക്ക് ഒഴുകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസി കൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇടുക്കിയിൽ മഴ വീണ്ടും ശക്തിയാർജ്ജിച്ചു ജില്ലയിലെ മിക്ക റോഡുകളിലും മണ്ണിടിച്ചിലുണ്ടായി വെള്ളത്തൂവൽ രാജാക്കാട് റോഡിൽ എസ് വളവിൽ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു

സംസ്ഥാനത്തെ ഏറ്റവും വലിയ് ജലസംഭരണിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പും ഉയർന്നു കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ ഗവിയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് വനം വകുപ്പ് നിരോധനം ഏർപ്പെടുത്തി കൊല്ലം ജില്ലയിൽ മഴ ശക്തിയാർജ്ജിച്ച സാഹചര്യത്തിൽ തീരദേശ മേഖലയിലുള്ളവർ മലേറിയക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യവിത്ത് ഉല്പാദനം സാക്ഷാത്കരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞരായ ഡോ ഹീരാലാൽ ചൌധരി ഡോ

എച്ച്

ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ മേഴ് സിക്കുട്ടിയമ്മ കൊല്ലത്ത് നിർവഹിക്കും മത്സ്യ കർഷകർക്ക് അവാർഡുകളും മന്ത്രി വിതരണം ചെയ്യും

സംസ്ഥാനത്തെ മികച്ച മത്സ്യ കർഷകർക്കുള്ള അവാർഡുകൾ മന്ത്രി ജെ മേഴിസിക്കുട്ടിയമ്മ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രഖ്യാപി ച്ചു ഇനി ലോകകപ്പ് വിശേഷങ്ങൾ

രണ്ടാം സെമി യിൽ നാളെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയുമായി ഏറ്റുമുട്ടും

ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നാലു ദിവസത്തെ സോക്കർ ഫിലീം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും

ഇതോടൊപ്പം ഫുട്ബോൾ മത്സരവും പ്രദർശിപ്പിക്കും എറണാകുളം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളെ കൂടി പൊലീസ് പിടികൂടി മട്ടാ ഞ്ചേരി സ്വദേശി അനസിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം ഏഴ് ആയി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത അനസിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ പങ്ക് വെളിവായതെന്ന് പൊലീസ് പറഞ്ഞു അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു മെഡിക്കൽ പ്രവേശനത്തിന് ബാങ്ക് ഗൃാരന്റി വേണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദേശം വിധി വന്നതിനു പിന്നാലെ പൊലീസിന്റെ സാന്നിധൃത്തിൽ രക്ഷിതാക്കളും മാനേജ്മെന്റ് അധികൃതരും ചർച്ച നടത്തി അതേസമയം ബാങ്ക് ഗൃാരന്റി ഇല്ലാത്തതിന്റെ പേരിൽ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളജിൽ ഒന്നാം വർഷ എംബി ബിഎസിന് പ്രവേശനം നിഷേധിക്കുന്നതായി പരാതി ഉയർന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവേശനത്തിനായി കോളജിൽ എത്തിയ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചു എറണാകുളം ജില്ലയിലെ പൂർത്തിയാകാത്ത നിർമ്മാണ വികസന പദ്ധതികളും സ്ഥലമേറ്റെടുക്കലും വേഗത്തിൽ നടപ്പാക്കുമെന്ന് മന്ത്രി സി

പദ്ധതി പുരോഗതികൾ കൃത്യമായ ഇട വേളകളിൽ അവലോകനം ചെയ്യുകയും തടസ്സങ്ങൾ നീക്കാൻ ഇട പെടുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കൊച്ചിയിൽ നിർമ്മാണ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യാൻ ചേർന്ന പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിൽ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഉയർത്തിക്കൊണ്ടു വരേണ്ടതെന്ന് മന്ത്രി ഡോ

ജലീൽ പറഞ്ഞു

നഴ്സിംഗ് റിക്രൂട്മെന്റ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ഉതുപ്പ് വർഗ്ഗീ സിനെ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറ്കടറേറ്റ് അറസ്റ്റു ചെയ്തു അനധികൃതമായി സമ്പാദിച്ച കോടിക്കണക്കിനു രൂപ വിദേ ശത്തേക്കു കടത്തിയ കേസിലാണ് ഉതുപ്പ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരാകാത്തതിനെ തുടർന്ന് വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റു ചെയ്തത് ഉതുപ്പ് വർഗീ സിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും

തിരുവനന്തപുരത്ത് മന്ത്രിമാരായ മാത്യു

കുഞ്ഞാലിക്കുട്ടി എം

വിമാനത്താവള വികസനം വലിയ വിമാനങ്ങൾ ഇറങ്ങൽ എന്നിവ ചർച്ച ചെയ്യും